നടന്ന ഐ

ഐക്യരാഷ്ട്രസഭാതലത്തിലും ഭീകരതചെറുക്കുന്നതിനുള്ള സാമ്പത്തികകാര്യ കർമ്മസേനയുടെ പ്രവർത്തനങ്ങളിലും ഇരുരാജ്യങ്ങളും കൂട്ടായി പ്രവർത്തിക്കുമെന്ന് യു

സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കിൾ പോംപിയോ രാജ്യരക്ഷാമന്ത്രി നിർമ്മലാസീതാരാമൻ പ്രതിരോധസെക്രട്ടറി ജെയിംസ് മാറ്റിസ് എന്നിവർ ഇന്ത്യ അമേരിക്ക ടു പ്ലസ് ടു ചർച്ചയ്ക്ക് ശേഷം പുറപ്പെടുവിച്ച സംയുക്ത വാർത്താക്കുറിപ്പിൽ വൃക്തമാക്കി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ അമേരിക്ക സഹകരണം പുതിയ മാനം കുറിക്കുന്നതായി വിദേശകാരൃമന്ത്രി സുഷമസ്വരാജ് പറഞ്ഞു

ദക്ഷിണേഷ്യയിലെ സ്ഥിതിഗതിയും ചർച്ച ചെയ്തു ൃഷ്സിഡ്ന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദക്ഷിണേഷ്യൻ നയങ്ങളെ ഇന്ത്യു പീഞുണക്കുന്നതായി സുഷമസ്വരാജ് പറഞ്ഞു

ഇന്ത്യയുമായി വിവിധ മേഖലകളിൽ സഹകരിക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് യു

ഇന്ത്യയും അമേരിക്കയും സുപ്രധാനമായ സൈനിക ആശയവിനിമയ സഹകരണ കരാറിൽ ഒപ്പുവച്ചു

ഇതിന് നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്തിയ പരിഗണനയാണ് നല്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വൃക്തമാക്കി

കാരൃക്ഷമമായ വിഭവ വിനിയോഗവും ഖരമാലിനൃ സംസ്ക്കരണവും അംഗരാഷ്ട്രങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ജമ്മുകാശ്മീർ ഗുജറാത്ത് എന്നീസംസ്ഥാനങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾ നേരിടാൻ അസം അത്യന്താധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തും കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായ സൈബ്ദർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാൻ ഏറ്റവും നൂതനമായ സാങ്കേതിക കഴിയുകയുള്ളൂ സംവിധാനങ്ങൾക്കേ എന്ന് ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു

വിശദാംശങ്ങളുമായി ശ്രീലത

ആവശ്യമായി വന്നതായി ശ്രീ

ചന്ദ്രശേഖരറാവു ഹൈദരാബാദിൽ ടിആർഎസ് ആസ്ഥാനമായ തെലങ്കാന ഭവനിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അതിരുകടന്നതായും ഒരു ആരോപണംപോലും അവർക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു

മണ്ഡലങ്ങളിലൊഴികെ രണ്ട് എല്ലായിടത്തും നിലവിലെ എം

ടിആർഎസ് പാർട്ടി മതേതര പാർട്ടിയായി നിലകൊള്ളുമെന്നും ബിജെപിയുമായി സഖ്യമുണ്ടാക്കില്ലെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം അറിയിച്ചു പിന്നീട് തെലങ്കാന നിയമസഭ പിരിച്ചുവിടുന്നതായി പ്രമേയം പാസാക്കി ന്യൂസ് ഡസ്ക് ആകാശവാണി

സോഫിയയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്തു മഹാത്മാഗാന്ധിയുടെ ഹിന്ദ് സ്വരാജ് എത്യു പുസ്തകം രാഷ്ട്രപതി ബൾഗേറിയൻ പ്രസിഡന്റ് റുമൻ റ്റൂദ്ദേപ്പിന് സമ്മാനിച്ചു കൃത്രിമ ബുദ്ധി വിവര വിശകലനം റോബ്ബോട്ടിക്സ് നാനോ സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയും ബൾഗേറിയയും തമ്മിൽ സഹകരണത്തിനുള്ള സാദ്ധ്യൃത്ക്ളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു

ഇന്ത്യയും ബൾഗേറിയയും ആണവ സഹകരണം നിക്ഷേപം ടൂറിസം സോഫിയ യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദി വിഭാഗം സ്ഥാപിക്കൽ എന്നീ നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനപാദത്തിൽ രാഷ്ട്രപതി ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രൌഗിലെത്തി

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത് ജസ്റ്റിസുമാരായ എ

ഖാൻവിൽകർ ഇന്ദു മൽഹോത്ര ആർ

നരിമാൻ ഡി

വകുപ്പിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും വൃക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും വൃത്യസ്ത വൃക്തിത്വങ്ങൾ അംഗീകരിക്കാൻ സമൂഹം പക്ഷതയാർജ്ജിച്ചതായും കോടതി നിരീക്ഷിച്ചു

മൃഗങ്ങളോടും കുട്ടികളോടുമുള്ള പ്രകൃതിവിരുദ്ധ ലൈംഗികബന്ധം ഇതനുസരിച്ച് കുറ്റകരമായിരിക്കും

തദ്ദേശസ്വയംഭരണ മന്ത്രി എ സി മൊയ്തീന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയത് ഇതിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലെത്തിയതോടെ കുടിവെള്ള സ്രോതസുകൾ ഗുണനിലവാര പരിശോധന നടത്താൻ പരിശീലനം സിദ്ധിച്ച വോളണ്ടറിയർമാരെ തദ്ദേശ വകുപ്പ് വിന്യസിക്കും

മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് കുടിവെള്ള സ്രോതസുകളുടെ വിവരം ശേഖരിക്കുക